എട്ട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി വ്യാപാരികളും വൃവസായികളും നികുതിവെട്ടിപ്പുകാരെ പുറത്തുകൊ ണ്ടുവരണമെന്ന് കേന്ദ്ര ധനമന്ത്രി പീയുഷ് ഗോയൽ

ക്രൊയേഷ്യയെ തോല്പിച്ചത് രണ്ടിനെതിരെ നാലു ഗോളുകൾക്ക് ശു സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശന ഷ്ടം മൂന്നുപേർ മരിച്ചു കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലാണ് മഴക്കെടുതിയിൽ മരണം

് കോഴിക്കോട് രാമനാട്ടുകര ദേശീയ പാതയിലെ വെള്ളക്കെട്ട് മറി കടന്നുപോകുന്നതിനിടെ ബൈക്കിൽ നിന്ന് തെന്നിവീണ വിദ്യാർത്ഥി ബസ് കയറി മരിച്ചു

കോളയാട് ആര്യപ്പറമ്പിലെ സിത്താര സിറിയക്കാണ് മരിച്ചത്

ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശി സുഭദ്രയാണ് മരിച്ചത് ് ് ് ് കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി

പലയിടങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു മലയോര മേഖലയിൽ കൂടുതൽ നാശന ഷ്ടമുണ്ടായി കാലവർഷകെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഉടൻ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് കെ

ജോസഫ് എം

എ ആവ ശ്യപ്പെട്ടു കൊല്ലം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു

ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി കരുനാഗപ്പള്ളി അഴീക്കൽ ഭാഗത്തെ വീടുകളിൽ കടൽവെള്ളം കയറിയതായി റിപ്പോർട്ടുണ്ട്

താഴ്ന്ന പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി കുട്ടനാട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്

ശക്തമായ കാറ്റിൽ ചേർത്തല ദേശീയപാതയിൽ ഇന്നു പുലർച്ചെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു

ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ നീരൊഴുക്ക് ശക്തമായതോടെ മണിയാർ മൂഴിയാർ ഡാമുകളുടെ ഷട്ടർ തുറന്നു ഇടുക്കിയിൽ കനത്ത മഴ വ്യാപകമായ നാശം വിതച്ചു കൊച്ചി ധനുഷ്ക്കോടി ദേശീയപാതയിലും തൊടുപുഴ ഇടുക്കി സംസ്ഥാന പാതയിലും മരം വീണ് മണിക്കൂറുകളോളം ഗത്യാഗത്തം തടസ്സപ്പെട്ടു കൊല്ലം തേനി ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ വെള്ളം കയറിയും കുമളി കമ്പം റൂട്ടിൽ ഇറച്ചി പ്പാലത്തിന് സമീപം മരം കടപുഴകി വീണും ഗതാഗതം തടസപ്പെട്ടു അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് ശക്തമായി തുടരുന്നു

നങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപു രം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത്

തയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറി യിച്ചു

ശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടു വിച്ചു

പുറത്തുകൊണ്ടുവരണമെന്ന് കേന്ദ്ര ധനമന്ത്രി പീയുഷ് ഗോയൽ പറ ഞ്ഞു നികുതി വെട്ടിപ്പ് നടത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്തുന്നവരെ തുറന്നു കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദി ത്വമാണെന്ന് അദ്ദേഹം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പറഞ്ഞു വൃാപാ രികൾ നികുതി വെട്ടിപ്പ് നടത്താതെ ഗുണനിലവാരമുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കി വേണം ബിസിനസ്സിൽ മത്സരിക്കാനെന്നും ധന മന്ത്രി അഭിപ്രായപ്പെട്ടു

രാവിലെ കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൻസ് കണ്ണ ന്താനത്തിന്റെ അദ്ധ്യക്ഷതയിൽ ചേരുന്ന യോഗം സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളായ സ്വദേശ് ദർശൻ പ്രസാദ് എന്നിവ നടപ്പാ ക്കുന്നത് അവലോകനം ചെയ്യും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ദേവസ്വം ബോർഡുകളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും സ്വദേശ് ദർശൻ പദ്ധതിക്ക് കീഴിൽ ആധ്യാത്മിക സർക്യൂട്ടിൽ ശബരിമ ലയെയും പ്രസാദ് പദ്ധതിയിൽ ഗുരുവായൂരിനെയും കേന്ദ്ര ടൂറിസം വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നു മറ്റന്നാൾ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനം സുഗമമാക്കുന്നതിന് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ വിളിച്ച സർവ്വ കക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും സർവ്വകക്ഷിയോ ഗത്തിന് മുന്നോടിയായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി യുൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി വെവ്വേറെ കൂടി ക്കാഴ്ച നടത്തുമെന്ന് സുമിത്ര മഹാജൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു എം പിമാർക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നതിന് നേതാക്കളെ പ്രേരിപ്പിക്കുമെന്നും അവർ പറഞ്ഞു

ക്കേണ്ട പൊതുതന്ത്രം ആവിഷ്കരിക്കുന്നതിന് പ്രതിപക്ഷപാർട്ടി നേതാ ക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും

മോസ്കോ ലുഷ്നികി സ്റ്റേഡിയത്തിൽ നടന്ന കലാശപോരാട്ടത്തിൽ ക്രൊയേഷ്യയെ രണ്ടിനെ തിരെ നാലുഗോളുകൾക്ക് തോല്പിച്ചാണ് ഫ്രഞ്ച് സംഘം കിരീടം ഉയർത്തി യത് ഫ്രാൻസ് രണ്ടാം തവണയാണ് കിരീടം നേടുന്നത്

നാലു തവണ വീതം ചാമ്പ്യന്മാരായു ഇറ്റലിയും ജർമ്മ നിയും കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ഒന്നിലധികം തവണ ലോകചാമ്പ്യ ന്മാരാകുന്ന മൂന്നാമത്തെ ടീമാണ് ഫ്രാൻസ് ആദ്യമായി ലോകകപ്പ് ഫൈന ലിൽ കളിച്ച ക്രൊയേഷ്യ മികച്ച പ്രകടനം കാഴ്ച വെച്ചെങ്കിലും ഫ്രഞ്ച് പ്രതിരോധത്തിനുമുന്നിൽ അവർക്ക് പിടിച്ചുനിൽക്കാനായില്ല

ലോകകപ്പ് നേടിയ ഫ്രാൻസിനെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്രൊയേഷ്യയെയും അഭിനന്ദിക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഫ്രാൻസിനൊപ്പം ലോകകപ്പിൽ ചരിത്രം കുറിച്ച ക്രൊയേഷ്യയെയും അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു

ലണ്ടനിൽ നടന്ന മത്സരത്തിൽ ദക്ഷി ണാഫ്രിക്കയുടെ കെവിൻ ആൻഡേഴ്സണെയാണ് ജോക്കോവിച്ച് നേരി ട്ടുള്ള സെറ്റുകൾക്ക് തോല്പിച്ചത് ജോക്കോവിച്ചിന്റെ നാലാം വിംബിൾഡൺ കിരീടമാണിത് ദുരൂഹസാഹചര്യത്തിൽ രാജ്യം വിട്ടവർ ഉപയോഗിച്ചത് വ്യാജ പാസ്പോർട്ടുകളാണെന്ന വിവരത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേ ഷണം ഊർജ്ജിതമാക്കി

കാഞ്ഞ ങ്ങാട് കേന്ദ്രീകരിച്ചായിരുന്നു വ്യാജപാസ്പോർട്ടുകൾ സംഘടിപ്പിച്ചത്

കാസർകോട്ടെ ചില പ്രദേശങ്ങളിൽ നിന്ന് ദുരൂഹ സാഹചര്യ ത്തിൽ കാണാതായവർ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ടു വെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം ഊർജ്ജിതമാക്കിയത്

ആരോഗ്യനയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആശുപത്രികളെല്ലാം ആധുനീകരിക്കുമെന്ന് മന്ത്രി ജെ ്മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിക്കുന്ന പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

കോൺഗ്രസ് സംഘടനയായ വിചാർ വിഭാഗ് പിന്മാറി കർക്കിടക മാസ ത്തിൽ രാമയണത്തെപ്പറ്റി ചർച്ചകളും സെമിനാറുകളും രാമായണപാരാ യണവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിനെതിരെ മുതിർന്ന നേതാക്ക ളായ വി

സുധീരനും കെ